ദേശവ്യാപകമായി കഴിഞ്ഞമാസം ലോക്ഡൌൺ ഏർപ്പെടുത്തിയതിനുശേഷം മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തുന്ന മൂന്നാമത്തെ വീഡിയോ കോൺഫറൻസാണിത് മുഖ്യമന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചാണ് പ്രധാനമന്ത്രി ആദ്യ ലോക്ഡൌൺ പ്രഖ്യാപിച്ചത് തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് മേയ് മൂന്നുവരെ ലോക്ഡൌൺ ദീർഘിപ്പിച്ചു

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ മുഖ്യമന്ത്രി ഇക്കാർട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്

കാറന്റൈയിൻ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കുന്നതിനാണ് കേരളം രജിസ്ട്രേഷൻ നടത്തുന്നത് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ എത്തുന്നവരെ പരിശോധിക്കാനും ആവശ്യമുള്ളവരെ നിരീക്ഷണത്തിലോ ക്വാറന്റൈയിൻ കേന്ദ്രത്തിലേയ്ക്കോ മാറ്റാനുമുള്ള സംവിധാനം സംസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്